എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ്

സ്ത്രീകൾ ഉൾപ്പെടെ ദർശനത്തിനെത്തുന്ന എല്ലാവർക്കും സുരക്ഷ നൽകേണ്ടതും ക്രമസമാധാനം ഉറപ്പാക്കേണ്ടതും സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തിന് അയച്ച കത്തിൽ പറഞ്ഞു സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കിടെ സമാധാനം ഉറപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു തിങ്കളാഴ്ചയാണ് ഇതുസംബന്ധിച്ച കത്ത് കേരളത്തിന് നൽകിയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു പ്രായ ത്തിന്റെ പേരിൽ സ്ത്രീകൾ ശബരമലയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് കോടതിയലക്ഷ്യത്തിന് ഉത്തരവാദിയാ കുമെന്ന കാര്യം കത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുമെന്നും ശബരിമലയിൽ സ്ഥിതി നിയ ന്ത്രണവിധേയമാണെന്നും സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് മറുപടി നൽകിയതായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു രദ്ദമ്പ്പെട്ടറ ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകിയേക്കും ഇക്കാര്യ ത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ബോർഡിന്റെ നിർണായക യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും യോഗത്തിൽ ഹർജി സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും നിയമവിദഗ്ദ്ധരുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മ കുമാർ സന്നിധാനത്ത് അറിയിച്ചു പുനപരിശോധനാ ഹർജി നൽകിയാൽ ശബരിമലയിലെ സമരം നിർത്തുമോയെന്നും അദ്ദേഹം ചോദിച്ചു രുട്ട്ട്ട്ട്ട്ട്ട ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി വിധിക്കെ തിരെ ദേവസ്വംബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകിയാൽ ഗവൺമെന്റ് സ്വാഗതം ചെയ്യുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഹർജി നൽകുന്ന കാര്യത്തിൽ ദേവസ്വംബോർഡിന് സ്വതന്ത്ര തീരുമാനമെടുക്കാ മെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ഗവൺമെന്റ് എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു

ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ട് ഹർജി നൽകി യത് ആർ എസ് എസുമായി ബന്ധമുള്ളവരാണെന്ന ആരോപണം കടകം പള്ളി ആവർത്തിച്ചു

പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കി പുനഃപരിശോധനാ ഹർജിയിൽ ദേവസ്വം ബോർഡിന് തീരു മാനമെടുക്കാമെന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാക്കുകളോട് തിരുവ നന്തപുരത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം

ദേവസ്വം മന്ത്രിയെപ്പോലുള്ള ആളുകൾ ശബരിമലയെ തകർക്കാൻ ശ്രമി ക്കുകയാണെന്നും അതിനുവേണ്ടിയാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയ തെന്നും അദ്ദേഹം ആരോപിച്ചു

നേതാക്കൾ പ്രകോപനപരമായ സമര രീതികളിലേക്ക് കടക്കരുതെന്നും അദ്ദേഹം ആവ ശ്യപ്പെട്ടു ന്യൂഡൽഹിയിൽ കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുമായി നടത്തിയ കൂടി ക്കാഴ്ചയിലാണ് രാഹുൽഗാന്ധി ഹൈക്കമാന്റ് നിലപാട് വ്യക്തമാക്കിയത് ശബരിമല വിഷയത്തിൽ സ്ത്രീകളുടെ വികാരം മാനിക്കണമെന്നും കൊടി പിടിച്ച് സമരം നടത്തേണ്ട ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ലെന്നും രാഹുൽഗാന്ധി പറഞ്ഞു അതേസമയം ശബ്രിമല വിഷയത്തിൽ എ

സിയുടെയും കെ

സിയുടെയും നിലപാടുകളിൽ വൈരുദ്ധ്യമില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു രുട്ടിട്ട്ട്ട്ട്ട്ട്ട ദേവസ്വംമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ആസൂത്രിത ഗൂഢാലോചന യാണ് ശബരിമല ക്ഷേത്ര സങ്കേതത്തെ കലാപഭൂമിയാക്കിയതെന്ന് ആർ

എസ് പ്രാന്ത കാര്യവാഹ് പി ഗോപാലൻകുട്ടി കുറ്റപ്പെടുത്തി ശബരിമല യുടെ പ്രാധാന്യം ഇല്ലാതാക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പരിശ്ര മങ്ങളുടെ തുടർച്ചയാണ് സി

എം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം കൊച്ചിയിൽ ആരോപിച്ചു രദ്ദമ്പ്പെട്ടറ നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിലെ സുരക്ഷാക്രമീകരണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനും ക്രമസമാധാന നില വിലയിരുത്തുന്നതിനു മായി മൂന്ന് ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥരെക്കൂടി നിയോഗിച്ചതായി സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു കൊച്ചി റേഞ്ച് ഐ

ജി എസ് ശ്രീജി ത്ത് പാലക്കാട് ജില്ലാ പൊലീസ് മേധാവി ദേബേഷ്കുമാർ ബെഹ്റ എന്നിവ രെയാണ് നിയമിച്ചത് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ന നിലയ്ക്കലിലും പമ്പയിലും നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട് മത സ്പർധ വളർത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തു ന്നവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന പൊലീസ് മേധാവി സൈബർ പൊലീസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി ഇത്തരം സന്ദേ ശങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രദ്ദേഷ്ടങ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക അടുത്ത മാസം നാലുമുതൽ ഉപരോധം ഏർപ്പെടുത്തുന്ന പ്രശ്നത്തിൽ അമേരിക്കയും ഇറാനും ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ ചർച്ച നട ത്തിവരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറി യിച്ചു ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ നിലപാട് അമേരിക്കയെ നേരത്തെ അറി യിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു

ക്രൂഡോ യിൽ വില ആഭ്യന്തര സമ്പദ് വൃവസ്ഥയിൽ ആശങ്ക ഉയർത്തിയ കാര്യവും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നവും അമേരിക്കയുടെ ഇറാനിലെ പ്രത്യേക പ്രതിനിധിയെ അറിയിച്ചിട്ടുണ്ടെന്നും രവീഷ്കുമാർ പറഞ്ഞു രുടെട്ട്ടറു പ്രളയാനന്തര നവകേരള നിർമ്മിതിക്ക് പ്രവാസികളുടെ പങ്കാളിത്തം ഉറ പ്പാക്കുന്നതിന് യു

ഇ യിൽ സന്ദർശനം നടത്തുന്ന മുഖൃമന്ത്രി പിണറായി വിജയൻ ദുബായിൽ സായിദ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷെയ്ക്ക് നഹി യാൻ ബിൻ സായിദുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തോട് അദ്ദേഹം ഐകൃദാർഢ്യം പ്രഖ്യാപിച്ചുവെന്നും ആവശൃമായ സഹായങ്ങൾ നൽകു മെന്ന് അറിയിച്ചതായും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു കേരളത്തിന്റെ പുനർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് വിശ ദീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു രുട്ടിട്ട്ട്ട്ട്ട്ട മുതിർന്ന കോൺഗ്രസ് നേതാവും ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ മുൻ മുഖ്യമന്ത്രിയുമായ എൻ ഡി തിവാരിയുടെ നിര്യാ ണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തുടങ്ങി ഒട്ടേറെ നേതാക്കൾ അനു ശോചനം അറിയിച്ചു

തിവാ രിയുടെ സേവനങ്ങൾ എന്നും ഓർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഇരുട്ടകറ്റി പ്രകാശം നിറയുന്ന വിജയദശമി ദിനത്തിൽ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് കുരുന്നുകളെ എഴുത്തിനിരുത്തും അക്ഷര ലോകത്തേക്ക് പിച്ചവെയ്ക്കുന്ന കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരി പകരാൻ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും പുലർച്ചെ മുതൽ തിരക്കാണ് തിരൂർ തുഞ്ചൻപറമ്പ് കോട്ടയം പനച്ചിക്കാട് മൂകാംബിക ക്ഷേത്രം പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകം എന്നിവിടങ്ങളിലെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു രദ്ദേഷ്ടങ ഭാഷാപിതാവിന്റെ തട്ടകമായ തിരൂർ തുഞ്ചൻ പറമ്പിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു

വിദ്യാരംഭത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക രജിസ്ട്രഷൻ ആവശ്യമില്ല തുഞ്ചൻ സ്മാരക മണ്ഡപം സരസ്വതി മണ്ഡപം എന്നിവിടങ്ങളിലായാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത് നിരവധി കുരുന്നുകളാണ് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ തുഞ്ചൻ പറമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കവികളുടെ വിദ്യാരംഭം കലാപരിപാടികൾ എന്നിവയും നടക്കും തുഞ്ചൻപ റമ്പിൽ മൂന്നു ദിവസത്തെ വിദ്യാരംഭ കലോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും എടപ്പാൾ ശുകപുരത്തെ തപസ്യ നവരാത്രി സംഗീതോ ത്സവത്തിനും ഇന്ന് സമാപനമാകും കുളങ്കര ക്ഷേത്രാങ്കണത്തിൽ എഴുത്തിനിരുത്തലിന് മഹാകവി അക്കിത്തം നേതൃത്വം കൊടുക്കും നാരായണീയ കർത്താവായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ വളാഞ്ചേരി കുറുമ്പത്തൂരിലെ ഇല്ലവും പെരിന്തൽമണ്ണക്കടുത്ത് ഭക്തകവി പൂന്താനത്തിന്റെ ഇല്ലപറമ്പും ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ നിരവധി ക്ഷേത്രാങ്കണങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിപുലമായ എഴുത്തിനിരുത്തൽ നടക്കും രദേഷ്ടെടു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നാലുമണിക്ക് നട തുറന്നു വിദ്യാ രംഭ ചടങ്ങുകൾ ആരംഭിച്ചു ഒൻപത് ദിവസം നീണ്ടുനിന്ന നവരാത്രി ആഘോ ഷങ്ങൾ ഇന്ന് സമാപിക്കും

ജില്ലയിലെ ലൈബ്രറികളിലും വിദ്യാരംഭ ചട ട ങ്ങുകൾ നടക്കുന്നുണ്ട് രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ പുലർച്ചെ നാല് മുതൽ വിദ്യാരംഭചടങ്ങുകൾ ആരംഭിച്ചു സരസ്വതീ നടയിൽ സാര സ്വത സൂക്ത ജപത്തിനും വിഷ്ണു നടയിൽ പുരുഷ സൂക്ത ജപത്തിനും ശേഷം പ്രത്യേക പൂജകൾ നടത്തി പൂജയെടുപ്പിനും വിദ്യാരംഭത്തിനും തുടക്കം കുറിച്ചു

തിന്മ യ്ക്കുമേൽ നന്മയുടെ വിജയം ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദിനം അസുര രാജാവായ രാവണന്റെയും സഹോദരൻ കുംഭകർണ്ന്റെയും മകനായ മേഘ നാദന്റെയും കോലം കത്തിച്ചാണ് ദസറ ആഘോഷം

തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ചതിന്റെ പ്രതീകമായാണ് ഈ ആഘോഷങ്ങളെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഈ ദിനത്തിൽ സന്തോഷം പങ്കുവെയ്ക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു

എൽ ഫുട്ബോളിൽ നിലവിലെ ചാമ്പൃൻമാരായ ചെന്നൈ യിൻ എഫ് സിക്ക് വീണ്ടും തോൽവി ചെന്നൈയിൽ ആവേശകരമായ മത്സ രത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ചെന്നൈയിൻ എഫ് സിയെ തോൽപ്പിച്ചത് ആദ്യപകുതിയിൽ ഇരുടീമും മൂന്ന് ഗോളുകൾ നേടി സമനിലയിലായിരുന്നു

ഇന്ന് മുംബൈ സിറ്റി പൂനെ സിറ്റിയെ നേരിടും രദേഷ്ടെടു സംസ്ഥാന സീനിയർ പുരുഷ വനിതാ സോഫ്റ്റ്ബോൾ ചാമ്പൃൻഷിപ്പ് ഇന്ന് മുതൽ മൂന്നുദിവസങ്ങളിലായി കാസർകോട് താളിപ്പടപ്പിൽ നടക്കും ലോകചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധാനംചെയ്ത പത്തോളം പുരുഷ വനിതാ കായിക താരങ്ങൾ വിവിധ ജില്ലകൾക്കായി മത്സരിക്കും നവംബറിൽ ഗോവയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട സംസ്ഥാന ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും

തൃത്താല കങ്കപ്പുഴക്കടവിലാണ് അപകടം കുളി ക്കാനിറങ്ങിയ നാലുപേരിൽ ഒരാളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി മലപ്പുറം ജില്ല യിലെ കാഞ്ഞിരക്കുറ്റിയിൽ നിന്ന് കുമ്പിടിയിലെ ബന്ധുവീട്ടിൽ എത്തിയ സാക്കീർ ജുമീന ജാസിർ എന്നിവരെയാണ് കാണാതായതെന്ന് പൊലീസ് അറിയിച്ചു പൊലീസും അഗ്നിസുരക്ഷാസേനയും നാട്ടുകാരും തെരച്ചിൽ തുടരുകയാണ് രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട കോട്ടയം പത്തനംതിട്ട ജില്ലകളിലൂടെ ഒഴുകുന്ന മണിമലയാറിനെ വീണ്ടെ ടുക്കുന്ന ജനകീയ പദ്ധതിക്ക് നാളെ തുടക്കമാകും കേരള ഹരിത മിഷനും ജനകീയ കൂട്ടായ്മയും ചേർന്ന് നടത്തുന്ന ശുചീകരണ യജ്ഞത്തിനാണ് നാളെ രാവിലെ മണിമലയിൽ തുടക്കം കുറിക്കുക